രാഷ്ട്രപതി രാംനാഥ് കോവിന് ഇന്ന് രാത്രി ഏഴിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും

മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്യും

നാളെ പ്രധാന ചടങ്ങ് നടക്കുന്ന ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കോവിഡ് പശ്ചാത്തലത്തിൽ ഇക്കുറി നിയന്ത്രണങ്ങളോടെയാണ് രാജ്പഥിൽ പരേഡ് നടക്കുക

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാഷ്ട്രപതിയുടെ പ്രസംഗം പ്രക്ഷേപണം ചെയ്യും ദൂരദർശന്റെ എല്ലാ നിലയങ്ങളും ആദ്യം ഹിന്ദിയിലും പിന്നീട് ഇംഗ്ലീഷിലും തുടർന്ന് പ്രാദേശിക ഭാഷകളിലും പ്രസംഗം സംപ്രേഷണം ചെയ്യും

രുഭ റിപ്പബ്ലിക് ദിന പരേഡ് രാജ്യത്തിന്റെ മഹത്തായ സാമൂഹിക സാംസ്കാരിക പൈതൃകത്തിനും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിനും ജീവൻ നൽകുന്ന ഭരണഘടനക്ക് സമർപ്പിക്കുന്ന ബഹുമതിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നാളെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ആദിവാസി അതിഥികൾ എൻസിസി കേഡറ്റുകൾ എൻഎസ്എസ് വൊളന്റിയർമാർ നിശ്ചദൃശ്യങ്ങളിലെ കലാകാരൻമാർ എന്നിവരുമായി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ സമ്പന്നമായ വൈവിധ്യത്തെ പരേഡിൽ പ്രദർശിപ്പിക്കുന്നത് എല്ലാവരിലും അഭിമാനം നിറക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തിന് തയാറെടുക്കുമ്പോൾ രാജ്യത്തിന്റെ വൈവിധ്യം മനസിലാക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു കൊറോണ സമയത്ത് സംഭവനകൾ അർപ്പിച്ചതിന് എൻ

വാക്സിനേഷൻ യജ്ഞത്തിൽ സഹായിക്കാനും അവബോധം സൃഷ്ടിക്കാനും മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി അവരോട് ആവശ്യപ്പെട്ടു

രംഭ ദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ റിപ്പബ്ലിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരേഡിനോടനുബന്ധിച്ച് നാല് സോണുകളായി തിരിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി പൊലീസ് അറിയിച്ചു

നവീനാശയങ്ങൾ കായികം കല സംസ്കാരം സാമൂഹ്യ സേവനം ധീരത എന്നീ മേഖലകളിലെ വിശിഷ്ടമായ കഴിവുകളും മികച്ച നേട്ടങ്ങളും ഉള്ള കുട്ടികൾക്കാണ് ബാലശക്തി പുരസ്കാരം കേന്ദ്രഗവൺമെന്റ് സമ്മാനിക്കുന്നത്

ദേഴ ഇന്ന് ദേശീയ സമ്മതിദായക ദിനം തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകരുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ സമ്മതിദായക ദിനം ആഘോഷിക്കുന്നത്

കമ്മീഷന്റെ വെബ് റേഡിയോ ഹലോ വോട്ടേഴ്സിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി നിർവഹിക്കും

സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക പുതിയ വോട്ടർമാർ ഉൾപ്പെടെ പരമാവധി വോട്ടർമാരെ വോട്ടർപ്പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നിവയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്

രും ഇന്ന് ദേശീയ ടൂറിസം ദിനം ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ടൂറിസം ദിനം ആചരിക്കുന്നത് ദേശീയ ടൂറിസം ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് ടൂറിസം കോൺക്ലേവ് സംഘടിപ്പിക്കും

രും വയനാട് മേപ്പാടിയ്ക്ക് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ കണ്ണൂർ സ്വദേശിനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ടെന്റ് ഉൾപ്പെടെ ഔട്ട്ഡോർ സ്റ്റേകൾക്കും മാർഗ്ഗ നിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഇതിനായി അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ മാനദണ്ഡങ്ങൾക്ക് പുറമെ പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ കൂടി നിർബന്ധമാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

വനാതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒന്നുംതന്നെ സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരിശോധനയിൽ പ്രാഥമിക മനസ്സിലായതെന്നും മന്ത്രി പറഞ്ഞു രും സംസ്ഥാനത്ത് പ്രൈമറി സ്കൂളുകളിൽ നടപ്പാക്കുന്ന പ്ലേ ഫോർ ഹെൽത്ത് പദ്ധതിക്ക് ഇന്ന് തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ തളാപ്പ് ഗവൺമെന്റ് മിക്സഡ് യുപി സ്കൂളിൽ മന്ത്രി ഇ

ജയരാജൻ നിർവഹിക്കും

രുര ഗോവയിൽ ഇന്നലെ ഐഎസ്എൽ ഫുട്ബോളിലെ രണ്ട് മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു ജംഷഡ്പൂർ എഫ്സിയും ഹൈദരാബാദ് എഫ്സിയും തമ്മിൽ നടന്ന ആദ്യ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു രണ്ടാം മത്സരത്തിൽ ബംഗളൂരു എഫ്സിയും ഒഡീഷ എഫ്സിയും ഓരോ ഗോൾ നേടി പോയിന്റ് പങ്കുവെച്ചു ഇന്ന് ചെന്നൈയിൻ എഫ്സി മുംബൈ സിറ്റിയെ നേരിടും

രും ഐ ലീഗിൽ നാലാം മത്സരത്തിൽ കൊൽക്കത്തയിൽ ഇന്ന് ഗോകുലം കേരള എഫ്സി മണിപ്പൂർ ടീമായ നെറോക്കയെ നേരിടും വൈകീട്ട് ഏഴിനാണ് മത്സരം

ഇന്ത്യൻ പേഴ്സണാലിറ്റി പുരസ്കാരം മുതിർന്ന അഭിനേതാവും സംവിധായകനും ഗായകനുമായ ബിശ്വജിത് ചാറ്റർജിക്ക് സമ്മാനിച്ചു

രുഭ അനുകരണീയവും മാതൃകാപരവുമായ ഹോം ലാബ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ ഡയറ്റിന് സാധിച്ചെന്ന് മന്ത്രി സി

ഹോം ലാബ് പ്രവർത്തനങ്ങളിലൂടെ കുടുംബത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലിന് സാധ്യത വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ സമ്പൂർണ്ണ ഹോം ലാബ് പൂർത്തീകരണ പ്രഖ്യാപനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

വിവിധ ജില്ലകളിലെ ചിത്രകാരന്മാർ പങ്കെടുത്ത ക്യാമ്പിൽ തൽസമയ ചിത്രരചന ചിത്രപ്രദർശനം ചിത്രകാരൻമാരെ ആദരിക്കൽ എന്നിവ നടന്നു രുഭ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ നെൽകൃഷി നടീൽ മന്ത്രി ടി

കല്ലൂർ കാക്കുനി പാടശേഖരത്തിൽ ഞാറു നട്ടു കൊണ്ടായിരുന്നു ഉദ്ഘാടനം

സംവാദങ്ങൾ പ്രബന്ധാവതരണം പ്രഭാഷണങ്ങൾ എന്നിവ വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് സംഘടിപ്പിക്കുന്നത്

അഞ്ച് വർഷമായിട്ടും ഗവൺമെന്റിന് ആരോപണം തെളിയിക്കാനായില്ലെന്നും അതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു